സംബൽപൂർ ഐഐഎം സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിർച്ചലായി നിർവഹിക്കും

കെ വിമാന സർവ്വീസുകൾ ഈ മാസം എട്ട് മുതൽ പുനരാരംഭിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ

മറ്റ് ഐഐമ്മുകളുമായി താരതമൃം ചെയ്യുമ്പ്യൂൾ ്കഴിഞ്ഞ രണ്ട് എം

എ ബാച്ചുക ളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയ സ്ഥാപനമാണ് ജബൽപൂർ ഐഐഎം

ഇതിന് മുന്നോടി യായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു വാക്സിൻ വിതരണം ഒഴികെ മറ്റെല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയി ട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു കോവിഡ് വാക്സിൻ ലഭ്യമാകുമ്പോൾ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം വിലയിരുത്തുകയാണ് ഡ്രൈ റണ്ണിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രി വൃക്തമാക്കി ഡ്രൈ റണ്ണിനായി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ആരോഗൃ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ഡ്രൈ റണ്ണിന്റെ സുഗമമായ നടത്തിപ്പിന് ഭരണകൂടങ്ങളും മെഡിക്കൽ ഓഫീസർമാരും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ആരോഗൃമന്ത്രി നിർദ്ദേശം നൽകി ആശുപത്രികൾ ഇതിനായി പൂർണ്ണസജ്ജമാണെന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചു

കോവിഡ് കർമ്മ്സേന തലവനും നിതി ആയോഗ് അംഗവുമായ ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആർ

എഫ് ബി എസ് എഫ് സി

എസ് എഫ് തുടങ്ങിയ സേനകളിൽ ജോലി ചെയ്യവെ ഇത്തരം വൈകലൃങ്ങൾ സംഭവിക്കുന്ന യുവാക്കൾക്ക് പുതിയ നിയമം ഉപകാരപ്രദമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇത്തരം ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന നിയമങ്ങളിൽ കാതലായ ഇളവുകൾ വരുത്താനും നരേന്ദ്ര മോദി സർക്കാർ പരിശ്രമി ക്കുന്നതിനായി ശ്രീ ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു

കെ വിമാന സർവ്വീസുകൾ ഈ മാസം എട്ട് മുതൽ പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം ബ്രിട്ടണിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വിമാന സർവ്വീസുകൾ നിർത്തി വച്ചത്

മുംബൈ ഹൈദരാബാദ് ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവ്വീസുകൾ

നിലവിലെ സാഹചരൃത്തിൽ ഇന്തൃയ്ക്ക് യുഎൻ സുരക്ഷാസമിതിയിൽ നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് മുൻ നയതന്ത്രവിദഗ്ധൻ അശോക് സജ്ജൻഹർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

കൂടുതൽ പേരിലേക്ക് ഇവ വ്യാപി ക്കാൻ സാധൃതയുണ്ടെന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറോളജിസ്റ്റ് ഡോ

സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും നൽകിയ അപേക്ഷകൾ പരിശോധിക്കാൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സമിതി യോഗത്തിൻറേതാണ് തീരുമാനം

ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം

പൊലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പുവരുത്തണം

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ മൂന്നര ലക്ഷം പിന്നിട്ടു

ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഈ വാക്സിൻ ഉടൻ ലഭൃമാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്

രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം ഇന്നലെ രണ്ട് പ്രാവശ്യം വെടിവയ്പും ഷെല്ലാക്രമണവും ഉണ്ടായതായി പ്രതിരോധ വക്താവ് അറിയിച്ചു

ജമ്മുവിലെ ഹോർട്ടികൾച്ചർ മേഖലയിൽ വൻമാറ്റം സൃഷ്ടിക്കാൻ ഈ നടപടി വഴി തെളിക്കും

ആക്രമണത്തിൽ പങ്കുള്ള മറ്റ് അഞ്ച് പേർക്കും കോടതി ശിക്ഷ വിധിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു